സൂപ്രധാന പദ്ധതികളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നിർവ്വഹിക്കും

എല്ലാ രാജ്യത്തെയും എല്ലാ പൌരന്മാർക്കും പ്രതിരോധ കുത്തിവയ്പ്പ് ഏറ്റവും വേഗം ലഭിക്കാൻ ആഗോള പരിശ്രമം ആവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു

എല്ലാവർക്കും കോവിഡ് വാക്സിൻ എത്തിക്കുക എന്നത് അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിലുള്ള ഏറ്റവും വലിയ ധാർമ്മിക വെല്ലുവിളിയാണെന്ന് ഗുട്ടറസ് യു എൻ രക്ഷാസമിതി ഉന്നതതല യോഗത്തിൽ പറഞ്ഞു

ദേശീയ സൌരോർജ്ജ മിഷനു കീഴിൽ നിർമ്മിച്ച കാസർകോട് സൌരോർജ്ജ പദ്ധതിയും പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും അടിയന്തിര സാഹചരൃങ്ങളിൽ സംയോജിത പ്രവർത്തനങ്ങൾ സാധൃമാക്കുന്നതിനായുള്ള ഇന്റഗ്രേറ്റഡ് കമാൻഡ് ആന്റ് കൺട്രോൾ സെന്ററിന്റെ ശിലാസ്ഥാപനവും പ്രധാനമന്ത്രി നിർവ്വഹിക്കും

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഐക്യരാഷ്ട്ര സഭാ സുരക്ഷാ സമിതിയുടെ തുറന്ന ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഐക്യരാഷ്ട്ര സഭയുടെ സമാധാന ദൌത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കായി രണ്ട് ലക്ഷം ഡോസ് കോവിഡ് വാക്സിൻ സമ്മാനമായി ലഭൃമാക്കും വാക്സിനേഷൻ ദൌതൃം കാര്യക്ഷമമായി തുടരുന്നതിലും ജനിതകഘടനാ മാറ്റം നിരീക്ഷിക്കുന്നതിലും വിവരം കൈമാറുന്നതിലും സഹകരിച്ച് പ്രവർത്തിക്കണമെന്നും ആരോഗൃ അടിസ്ഥാന സൌകര്യം മെച്ചപ്പെടുത്തേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു

എസ്

ഇന്തോ പസഫിക് മേഖലയിലെ സമഗ്രവും സ്വതന്ത്രവുമായ സഹകരണമുൾപ്പടെയുള്ള വിഷയങ്ങൾക്ക് പുറമേ ആഭ്യന്തര ആഗോള വിഷയങ്ങളും യോഗത്തിൽ ചർച്ചയാകും കോവിഡ് സാഹചര്യവും ആഗോള താപനവും ചർച്ച ചെയ്യുന്ന യോഗം ടോക്യോയിൽ നടന്ന മുൻയോഗത്തിൽ കൈക്കൊണ്ട തീരുമാനങ്ങൾ മുന്നോട്ടു കൊണ്ടു പോകാനുള്ള നിർദ്ദേശങ്ങളും പരിശോധിക്കും

എസ് പ്രാർഷിക വ്യാപാര യോഗം യു എസ് ഐ ഡി സി വെർച്ചല്ലായി അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേക്ക് അര ട്രില്ല്യൻ ഡോളറിന്റെ വ്യാപാരമാണ് ലക്ഷ്യമിട്ടുക്ക്ക്തെന്നും ഇരുരാഷ്ട്രങ്ങളും തമ്മിലുള്ള തുടർച്ചയായ സഹകരണത്തിലൂടെ ഇത് സാധൃമാക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു

ഇന്ത്യയും ഒമാനും തമ്മിലുളള പ്രതിരോധ ആരോഗ്യ വാണിജ്യ മേഖലകളിലെ സഹകരണത്തിൽ ഇരു നേതാക്കളും തൃപ്തി രേഖപ്പെടുത്തി രാജ്യങ്ങൾക്കിടയിലുള്ള സാമ്പത്തിക സാംസ്കാരിക ബന്ധം ഊഷ്മളമാക്കാനുള്ള നടപടികളിലും രാജ്യത്തിനായി കൊവിഡ് വാക്സിൻ എത്തിച്ചതിനും ഒമാൻ സുൽത്താൻ ഇന്ത്യക്ക് നന്ദി അറിയിച്ചു

അസമിലെ ധൂബ്രി ഫുൽബാരി പാലം മജൂലി ഷ്ട്ലൂം തുടങ്ങിയവയുടെ തറക്കല്ലിടലും പ്രധാനമന്ത്രി വീഡ്ടിയിൽ കോൺഫറൻസിങ്ങിലൂടെ നിർവ്വഹിക്കും

അക്ബർ നൽകിയ ക്രിമിനൽ മാനനഷ്ട കേസ് കോടതി തള്ളി

ദശാബ്നങ്ങൾ കഴിഞ്ഞാലും സ്ത്രീക്ക് പരാതി നൽകാൻ അവകാശമുണ്ടെന്നും ഡൽഹി അഡീഷണൽ ചീഫ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് വിധി പ്രസ്താവത്തിൽ വ്യക്തമാക്കി

വാക്സിൻ എടുക്കുന്നു കാര്യത്തിൽ ആർക്കും ആശങ്കയുടെ ആവശ്യമില്ലെന്നും ഇക്കാര്യത്തിൽ തെറ്റിദ്ധാരണ പടർത്തുന്ന പ്രചരണങ്ങൾ ഉണ്ടാകരുത്ത്ന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ കോവിഡ് വൈറസ്ടിൽ പുതിയ ജനിതക വൃതിയാനം വന്നിരിക്കുന്നു എന്ന വാർത്ത ആൾക്കാജനകമായ രീതിയിൽ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുത് ശരിയല്ലെന്നും ജനിതക വ്യതിയാനം ഏതെങ്കിലും ത്രത്തിൽ അപകടകരമായ സ്ഥിതി സൃഷ്ടിക്കുമെന്ന വിവരം ഒക്ട്യോഗികമായി ലഭിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി

കേരള മെഡിക്കൽ പ്രാക്റ്റീഷണഴ്സ് ആക്ട് നടപ്പാക്കുന്നതിന് ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്യാനും ഇന്നലെ ചേർന്ന മന്ത്രിസഭ തീരുമാനമെടുത്തു